അമ്പെയ്ത്ത് ലോകകപ്പ് നാലാം ഘട്ട ഫൈനലിൽ കടന്നു

ബുധനാഴ്ചയാണ് ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ ലോക്സഭയിൽ അവിശ്വാസപ്രമേയത്തിന്റെ ചർച്ചയ്ക്കും വോട്ടെടുപ്പിനുമായി അനുമതി നൽകിയത് നാല് വർഷത്തിനിടെ എൻ

എ ഗവൺമെന്റിനെതിരെയുള്ള ആദ്യ വിശ്വാസ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുക

അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കായി ഏഴ് മണിക്കൂറാണ് സ്പീക്കർ അനുവദിച്ചിരിക്കുന്നത്

ഐ

എം

പ്രമേയത്തിന്റെ പ്രധാന അവതാരകർ എന്ന നിലയിൽ തെലുഗുദേശം പാർട്ടി ചർച്ചകൾക്ക് തുടക്കമിടും

ഡി

എ ഗവൺമെന്റിന് ലോക്സഭയിൽ ഉള്ളത്

ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഡൽഹി സംഭാഷണ ത്തിൽ മന്ത്രിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ ഇന്ത്യയുടെ കിഴക്കൻ നയത്തിലൂടെ ഇന്ത്യ ആസിയാൻ ബന്ധം എല്ലാ തരത്തിലും ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീമതി സുഷമ പറഞ്ഞു ഇന്തോ പസഫിക് സമുദ്ര വ്യോമ മേഖലയുടെ പൊതുവായ വിനിയോഗം ആവശ്യമാണെന്നും വിദേശകാര്യമന്ത്രി എടുത്തുപറഞ്ഞു ഇന്ത്യയുടെ ഇന്തോ പസഫിക് താൽപ്പര്യം വളരെ വിശാലവും ആഴമുള്ളതുമാണ് മേഖലയുടെ സുരക്ഷയും വളർച്ചയുമാണ് ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്നും ചുരുക്കപ്പേരായി സാഗർ എന്ന് പറയാമെന്നും കേന്ദ്രമന്ത്രി വൃക്തമാക്കി

കേവലം കാഴ്ചക്കാരായി നിന്നാൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളെ രാജ്യദ്രോഹികളായി കണക്കാക്കി നിയമനടപടികൾ സ്വീകരിക്കുമെന്നും വാട്ട്സ്ആപ്പിന് നൽകിയ നോട്ടീസിൽ കേന്ദ്രം താക്കീത് നൽകിയിട്ടുണ്ട് കൂടുതൽ ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പിലാക്കാനും ഉത്തരവാദിത്തം ഉറപ്പുവരുത്താനും നിയമനടപടികൾ സാധ്യമാക്കാനും ആവശ്യപ്പെട്ടാണ് വാട്ട്സ്ആപ്പിനെ സമീപിച്ചതെന്ന് വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ നയം രൂപീകരിക്കുന്നതിനായി രാഷട്രീയ പാർട്ടികൾ ഉൾപ്പെടെ തൽപരകക്ഷികളുമായി ചർച്ചകൾ നടത്തുമെന്ന് നിയമ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയെ അറിയിച്ചു

പതിമൂന്ന് പൂർവ്വ വിദ്യാർഥികളെ ചടങ്ങിൽ ആദരിക്കും പശ്ചിമബംഗാൾ ഗവർണർ കേസരിനാഥ് ത്രിപാഠി മുഖ്യാതിഥിയായി പങ്കെടുക്കും

ജസ്റ്റിസ് എ

സിക്രി ജസ്റ്റിസ് അശോക ഭൂഷൺ എന്നിവരടങ്ങിയ ബഞ്ചാണ് വിധി പറയാൻ മാറ്റിയത്

ഒഴിവാക്കാനാവാത്ത ചില കാരണങ്ങളാൽ കഴിഞ്ഞ മാസം അമേരിക്ക ഇത് മാറ്റിവയ്ക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായുള്ള സംഭാഷണ്ടത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയ്കോ ആമ്മേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസ് എന്നീവർ ഇന്ത്യയിലെത്തും ചർച്ചകളിൽ ഇരുരാജ്യങ്ങളുടെയും നെയതന്ത്ര സുരക്ഷ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നുത് മുഖ്യ വിഷയമാകും ഇന്തോ പസഫിക് മേഖലയിലും അതിന്പ്പുറത്തു നിന്നും ഇരുരാജ്യങ്ങളും സംയുക്തമായി വെല്ലുപ്പിളികൾ നേരിടുന്ന സാഹചര്യത്തിലാണിത് കഴിഞ്ഞ വർഷം പ്രധാനമൂന്ത്രി നരേന്ദ്രമോദിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനവേളയിൽ പ്രഖ്യാപിച്ചതാണ് ടൂ പ്ലസ് ടൂ സംഭാഷണം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള അവസരമായാണ് ഈ ചർച്ചകളെ കണക്കാക്കുന്നത്

വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

ജി സി പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ അദ്ധ്യാപക തസ്തികയിൽ പട്ടികജാതി വർഗ്ഗ മറ്റ് പിന്നാക്ക വിഭാഗ സംവരണത്തിന് തസ്തിക നിർണയം നടത്തുമ്പോൾ ഒരു സ്ഥാപനത്തിലെ ഓരോ വകുപ്പും അടിസ്ഥാനമാക്കി കണക്കെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സുപ്രീംകോടതി ശരിവച്ച അലഹബാദ് ഹൈക്കോടതി ് വിധിയുടെ ചുവട് പിടിച്ചായിരുന്നു യു ജി

എന്നാൽ നീക്കത്തിനെതിരെ പ്രതിഷേധമുയർന്നതോടെ കേന്ദ്ര മാനവ വിഭ്രവശേഷി മന്ത്രാലയവും യു ജി സി യും നിർദ്ദേശം പിൻവലിക്കുന്നതിന്റായി സുപ്രീംകോടതിയിൽ പ്രത്യേക അവധി ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു പുതിയ നിർദ്ദേശ്യപകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടത്ത്രൂതെന്നും യു ജി സി ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ ക്ന്ദ്രഗവൺമെന്റിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ സ്തുപ്രീംകോടതി ഉടൻ തന്നെ വാദം കേൾക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോടികളുടെ തട്ടിപ്പ് നടത്തി രാജ്യം വിടുന്ന സാമ്പത്തിക കുറ്റവാളികളുടെ സ്വത്തുക്കൾ വിറ്റ് കടം വീട്ടുന്നതിനുള്ള അനുമതി നല്കുന്നതാണ് ബില്ല് നേരത്തേ സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കാനും അധികാരം നൽകുന്നതാണ് ഈ ബില്ല് വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നീതി നിഷേധിക്കില്ലെന്ന് ഉറപ്പു വരുത്തും വിധം കാലാനുസൃതമാണ് ബില്ലെന്ന് ലോക്സഭയിൽ ഇതു് സംബന്ധിച്ച ചർച്ചയിൽ ധനമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു

എൽ നെതിരെയുള്ള ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതായി സിബിഐ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു രേഖകളിൽ തിരിമറി കാട്ടി ഒരു ചൈനീസ് കമ്പനിയ്ക്ക് അനധികൃതമായി പണം നൽകിയതിലൂടെ ചില ബി എസ് എൻ

അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തലുകളുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നും സിബിഐ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ഗീത മിത്തൽ ജസ്റ്റിസ് സി ഹരിശങ്കർ എന്നിവരുൾപ്പെട്ട ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു

കുപ്പാര ജില്ലയിൽ ബന്ദിപ്പോൾ വ്വനമേഖലയിൽ സൈന്യം നടത്തിയ തെരച്ചിലിലാണ് ഭീകരനെ ക്കണ്ട്ത്തി വധിച്ചത്

പ്രദേശത്ത് നിന്ന് ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും കണ്ടെടുത്തു ഭീകരനിൽ നിന്നും ആയുധം പിടികൂടിയതായി രാജ്യരക്ഷാ വക്താവ് അറിയിച്ചു

അംബാസിഡർ ജോൺ ബോൾട്ടണാണ് ട്രംപ് നിർദ്ദേശം നൽകിയതെന്ന് പ്രസ് സെക്രട്ടറി സാറ സാന്റേഴ്സ് ട്വിറ്ററിൽ അറിയിച്ചു പുടിന്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ പറഞ്ഞു

എസും റഷ്യയും തമ്മിലുള്ള ഫിൻലൻഡ് ഉച്ചകോടിക്ക് മൂന്ന് ദിവസം പിന്നാലെയാണ് അമേരിക്കയുടെ അറിയിപ്പ്

നാളെ ഇന്ത്യ ഫ്രാൻസിനെ നേരിടും ഓപ്പണിംഗ് റൌണ്ടിൽ ബ്രിട്ടനെ ഒരു പോയിന്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ മത്സരത്തിന് യോഗൃത് നേടിയത് രണ്ടാം റൌണ്ടിൽ യുഎസ്എ യെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്